ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഗരീബ് കല്യാൺ റോസ്ഗർ അഭിയാന് പ്രധാനിമ്പ്തി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

ഇത്തരത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മുൻ കാലങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾക്ക് വിരുദ്ധമായി ഇന്ത്യൻ സൈന്യം ശക്തമായി അതിനെ നേരിടുമെന്നാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഗാൽവൻ മേഖലയിൽ നിയന്ത്രണ രേഖയിൽ ചൈന ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചിരുന്നു

നിയന്ത്രണരേഖയിലെ ചൈനയുടെ സൈനിക സന്നാഹത്തെ പൂരാജയപ്പെടുത്തിയ ഇന്തൃൻ സായുധ സേനയുടെ ധീരതയ്ക്കും പ്രദ്യേശ്ഭക്തിക്കും പ്രധാനമന്ത്രി ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ആദരവാണ് അർപ്പിച്ചത് യഥാർത്ഥ നിയന്ത്രണ രേഖ്വയിൽ ്ഇന്ത്യയുടെ ഭാഗത്ത് ചൈനീസ് സാന്നിദ്ധ്യം ഉണ്ടായിരുന്നില്ലെന്നു പ്രധാനമന്ത്രിയുടെ നിരീക്ഷണം ഇന്ത്യൻ സൈന്യത്തിന് അവരെ പ്രച്ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിലായിരുന്നു

അത് സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധവുമാണ് പ്രസ്തുത പ്രദേശത്ത് മുമ്പ് ചില കൈയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്

യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായ പിന്മാറ്റത്തിന് ഈ സർക്കാർ കാരണവശാലും അനുവദിക്കില്ലെന്നും ഒരു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ ജീവിതം നൽകുന്ന സൈനികരുടെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം വിവാദങ്ങൾ നിർഭാഗൃകരമാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂട്ടിച്ചേർത്തു

കുടിയേറ്റ തൊഴിലാളികൾക്ക് വരുമാന മാർഗ്ഗം ഒരുക്കുന്നതിനോടൊപ്പം ഗ്രാമീണൂ മേഖലയിൽ അടിസ്ഥാന സൌകര്യ വികസനവും പദ്ധതി ലക്ഷ്ണമിട്ടുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ബിഹാറിലെ ഖഗാരിയ ജില്ലയിലെ തെലിഹാറിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ്ട് നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കമിട്ടത്

ലഡാക്കിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിച്ചാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്

ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ചൈനയോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആരും രാജ്യത്തിന്റെ അതിർത്തി കടന്നിട്ടില്ലെന്നും ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾ ആരും പിടിച്ചെടുത്തിട്ടില്ലെന്നും ശ്രീ മോദി വൃക്തമാക്കി

ഒരു ദിവസത്തിനിടയിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്

തിരുവനന്തപുരം നഗരത്തിൽ രോഗം വ്യാപിക്കുന്ന സാഹചരൃത്തിൽ സാമൂഹൃ അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം കോർപ്പറേഷൻ കോട്ടയം ജില്ലയിലെ ചിറക്കടവ് എറണാകുളം ജില്ലയിലെ വെങ്ങോല എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ പാലക്കാട് ജില്ലയിലെ നാല് പ്രദേശങ്ങളെ ഹോട്ട് സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി

തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാലടി ജാഗ്ഷൻ ആറ്റുകാൽ ഐരാണിമുട്ടം മണക്കാട് ജംഗ്ഷൻ ചിറ്റ്മുക്ക് കാലടി റോഡ് എന്നിവയാണ് കണ്ടയ്മെന്റ് സോണുക്ട്രിൽ

പ്രവേശന പരീക്ഷകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത്

പാകിസ്ഥാനും മെക്സിക്കോയുമാണ് മരണസംഖ്യ ഉയരുന്ന മറ്റ് രണ്ട് രാജ്യങ്ങൾ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ്

യോഗ ആരോഗൃത്തിന് യോഗ വീടുകളിൽ കുടുംബത്തോള്ട്ടാപ്പം എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ വർഷ്ക്ക്ക്ക് ദിനാചരണ പ്രമേയമായി മുന്നോട്ട് വയ്ക്കുന്നത്